ജമ്മു കശ്മീരിൽ സ്കൂളുകൾ വ്യാഴാഴ്ചയും കോളേജുകൾ ഈ മാസം ഒമ്പതിനും തുറക്കും

ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാകിസ്ഥാൻ വീ ും വെടിനിർത്തൽ കരാർ ലംഘിച്ചു

ലോക അത്ലറ്റിക് ചാമ്പൃൻഷിപ്പിൽ വനിതകളുടെ ജാവ്ലിൻ ത്രോയിൽ ഫൈനലിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി അന്നുറാണി

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്ലിക്കേഷനും ആയുഷ്മാൻ ഭാരത് സ്മാർട്ട് ആപ്പ് ഗ്രാന്റ് ചലഞ്ചും ശ്രീ

ആയുഷ്മാൻ ്ഭാരത് അനുസ്മരണ സ്റ്റാമ്പിന്റെ പ്രകാശന കർമ്മവും അദ്ദേഹം നിർവ്വഹിക്കും പദ്ധതിയുടെ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും

മോദി ടിറ്റർ സന്ദേശത്തിലൂടെ രാഷ്ട്രപതിക്ക് ആയുരാരോഗ്യ സൌഖ്യം നേർന്നു

കോവിന്ദിന്റെ വ്യക്തമായ നയങ്ങളിലൂടെയും പുതിയ ദിശാബോധത്തിലൂടെയും ഇന്ത്യയ്ക്ക് സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ദരിദ്രരുടെയും അധഃകൃതരുടെയും ഉന്നമനത്തിനായുള്ള ശ്രീ കോവിന്ദിന്റെ അക്ഷീണ പ്രയത്നം ശ്ശാഖനീയമാണെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി നിരവധി കേന്ദ്രമന്ത്രിമാരും പ്രമുഖരും ആശംസകൾ നേർന്നു

രാംനാഥ് കോവിന്ദ് ജനിച്ചത്

സീറ്റ് പങ്കിടൽ സംബന്ധിച്ച അന്തിമതീരുമാനവും സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഇരുപാർട്ടികളും അറിയിച്ചു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ക്രിറ്റ്ഗ്ഗോയി അധൃക്ഷനായ ബഞ്ച് ഇന്നലെ ഇതു സംബന്ധിച്ച ഹർജികൾ ജസ്റ്റിസ് എൻ

ജസ്റ്റിസുമാരായ എസ്

കൌൾ ആർ സുബാഷ് റെഡ്ഡി ബി ആർ ഗവായി സൂര്യകാന്ത് എന്നിവരാണ് അഞ്ചംഗ ബഞ്ചിലെ മറ്റ് ജഡ്ജിമാർ

ഇത്ലംഘിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുംകനത്ത പിഴഈടാക്കുമെന്നുംഅദ്ദേഹംഅറിയിച്ചു നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിദ്യാഭ്യാസസ്ഥാപനങ്ങളുടെരജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ശ്രീ ബസീർ അഹമ്മദ്ഖാൻ പറഞ്ഞു

ഷാഹ്പൂര് കിർനി മേഖലകൾക്കുനേരെയാണ് പാക്സേന വെടിവെയ്പ്പുംഷെല്ലാക്രമണവും നടത്തിയതെന്ന്സേനാ വക്താവ്ആകാശവാണിലേഖകനോട് പറഞ്ഞു ഇന്ത്യൻ സേന ശക്തമായിതിരിച്ചടിച്ചു ആക്രമണത്തിൽ ആളപായമോമറ്റ്അത്യാഹിതങ്ങളോറിപ്പോർട്ട്ചെയ്തിട്ടില്ല

രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് വോട്ടെടുപ്പ് എന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ശൈലേന്ദ്രകുമാർ ശ്രീനഗറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രൊട്ടെടുപ്പ് ദിവസം തന്നെ ഉച്ചതിരിഞ്ഞ് വോട്ടെണ്ണൽ നടത്തും

റിസർവ്വ് ബാങ്ക് നിർദ്ദേശങ്ങൾ ആറ് മാസത്തേക്ക് നിലനിൽക്കും

പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡേ ന്യൂഡൽഹിയിൽഅറിയിച്ചതാണ്ഇക്കാര്യം

അപ്രന്റീസുകളുമായി ബ്ന്ധപ്പെട്ട നിയമങ്ങൾ കമ്പനികളിൽകർശനമായി പാലിക്കുന്നു ന്ന്സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നുംകേന്ദ്ര മൂന്ത്രി പറഞ്ഞു

വൃക്തികൾ സംഘങ്ങൾ സംരംഭകർ കമ്പനികൾ എന്നിവയ്ക്കായും വിദ്യാർത്ഥികൾക്കായും പ്രത്യേക മൽസരങ്ങൾ നടക്കും

സീതാൻഷു കർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണിത്

ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ിളാഫ് കമ്മ്യൂണിക്കേഷന്റെ അധികചുമതലയും ശ്രീ

മറ്റ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഇളവിന് ഉപരിയായുള്ള കീഴിവാണ് നൽകുന്നത് മുതിർന്ന പൌരന്മാരെ ആദരിക്കാനും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ലക്ഷ്യമിടുന്നതാണ് നടപടി

പാറ്റ്ന ബക്സർ ഭഗൽപൂർ പൂർണിയ അരേറിയ തുടങ്ങിയ ജില്ലകളെയാണ് പ്രളയം കൂടുതലായി ബാധിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജിതമാക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി

ഇത്തരത്തിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അന്നുറാണി

മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കറുമായി ഇത് സംബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും

രാഹുൽഗാന്ധി എം

മുഖ്യമന്ത്രിയെ ക ് വിഷയം ചർച്ച ചെയ്തു